പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സ്ഥിതി വിലയിരുത്തി മൂൻകരുതൽ ശക്തമാക്കാൻ നിർദ്ദേശം

ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് മീൻ പിടുത്തക്കാർ കടലിൽ പോകരുത്

കോവിഡ് പരിശോധനയ്ക്കുള്ള പുതിയ മാർഗ്ഗരേഖ ഐ സി

രോഗൃ അസംബ്ലി പ്രമേയത്തിന് ഇന്തൃയൂടെ പിന്തൂണ കോവിഡ് വെല്ലുവിളി ഇന്ത്യ പ്രതിബദ്ധതയോടെയാണ് നേരിടുന്നതെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ

ദേശീയ ദുരന്ത നിവ്ാരണ അതോറിട്ടിയിലെ ഉന്നത ഉദ്യോഗ സ്ഥർ മുൻകരുതൽ നടപടികൾ യോഗത്തെ ധരിപ്പിച്ചു എല്ലാവരുടെയും സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും ഉറപ്പ് നൽകുന്നതായും പ്രധാനമന്ത്രി ടിറ്ററിൽ അറിയിച്ചു അവശ്യഘട്ടത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനും രക്ഷാപ്രവർത്തനത്തിനും സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്തതായി ശ്രീ

നിർദ്ദേശം ലഭിച്ചാലുടൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ സന്നദ്ധരായി നിലയുറപ്പിച്ചിട്ടുണ്ട്

ചുഴലിക്കാറ്റ് നാളെ തീരം തൊടും

ഒഡീഷ പശ്ചിമ്ബർഗ്ഗാൾ തീരങ്ങളിൽ ശക്തി യായ മഴയും കാറ്റുമുണ്ടാകൂമെന്നു്ം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

കൊല്ലം പ്രപത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

ഇ കുവൈറ്റ് ബഹറിൻ ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരത്തിൽ പരം പ്രവാസികളെയാണ് നാട്ടിലെത്തിക്കുന്നത് റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കും ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കുമുള്ള വിമാനങ്ങളിൽ മുന്നൂറോളം യാത്രക്കാരുണ്ടാകും

തൊഴിലാളികൾ രോഗികൾ ഗർഭിണികൾ ഒറ്റപ്പെട്ടു പോയ വിനോദസഞ്ചാരികൾ വൃദ്ധജനങ്ങൾ എന്നിവർക്കാ ണ് മുൻഗണന പരിശോധനയിൽ കോവിഡ് രോഗലക്ഷ ണം ഇല്ലാത്തവർക്കാണ് യാത്രാനുമുതി് ്തൽകിയിട്ടുളളത്

ഒരു ദിവസത്തിനിടെ ഇന്ത്യയിലുണ്ടാകുന്ന ഏറ്റവും കൂടിയ രോഗബാധ നിരക്കാണ് ഇത്

കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ആരോഗ്യ പ്രവർത്തകരെയും പരിശ്ശോധിക്കും

മാളുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയുണ്ടാവില്ല

ബാർബർ ഷോപ്പുകളും ബൃൂട്ടി പാർലറുകളും എയർ കണ്ടീഷൻ സംവിധാനം ഒഴിവാക്കി പ്രവർത്തിക്കാമെ ന്നും മുഖ്യമന്ത്രി പറഞ്ഞു റസ്റ്റോറന്റുകളിലെ ടേക്ക് എവേ കൌണ്ടറുകൾ വഴി രാത്രി ഒൻപത് വരെ ഭക്ഷണവിതരണം നടത്താം

ലോകാരോഗ്യ സംഘടന ഇക്കാരൃത്തിൽ വൃക്തമായി പ്രതികരിക്കണമെന്നാവശ്യ പ്പെട്ടാണ് പ്രമേയം കൊണ്ടുവന്നത്

കൊറോണക്കെതിരെ ഇന്ത്യ പ്രതിബദ്ധത യോടെയാണ് പ്രതികരിക്കുന്നതെന്ന് ഡോ

വൈറസിന്റെ ആവിർഭാവ സമയത്ത് തന്നെ രാജ്യം കരുതൽ നടപടി തുടങ്ങി

വിദേശത്ത് കുടുങ്ങിയ പൌരന്മാരെ നാട്ടിൽ എത്തിക്കാനും നടപടികൾ എടുത്തി ട്ടുണ്ട്

ഹർഷ വർദ്ധൻ അറിയിച്ചു

കണ്ടെയ്ൻമെന്റ് മേഖലകളിൽ ഒഴികെ രാവിലെ ഏഴു മുതൽ രാത്രി ഏഴു വരെ ജില്ലവിട്ട് യാത്രചെ യ്യുന്നതിന് നിലവിലുള്ള പാസ് സംവിധാനം ഇന്ന് മുതൽ നിർത്തലാക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു യാത്രക്കാർ തിരിച്ചറിയൽ കാർഡ് കരുതണം അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റ് ജില്ലകളിലേക്ക് രാത്രി യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും പോലീസ് പാസ് വാങ്ങേണ്ടതാണ് ഹോട്ട ലുകളിൽ നിന്ന് രാത്രി പത്തുമണി വരെ ഭക്ഷണം പാഴ്സ ലായി വാങ്ങാൻ അനുവാദം നൽകിയതായും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു